നായിഡു ക്രിക്കറ്റ് ട്രോഫിയിലെ കേരളത്തിന്റെ അവസാന ഹോം മത്സരം ഇന്ന് തലശ്ശേരിയിൽ ബീച്ച് ഗെയിംസ് വടം വലി മത്സരത്തിൽ കണ്ണൂരും കാസർഗോഡും പുരുഷ വനിതാ ചാമ്പ്യൻമാർ

സമിതി യുടെ രണ്ടാമത്തെ യോഗമാണ് ന്യൂഡൽഹിയിൽ ചേർന്നത് പ്രധാന മന്ത്രി നരേന്ദ്രമോദി രോഗ സാഹചര്യം നേരിട്ടുതന്നെ വിലയിരുത്തു ന്നുണ്ട് വുഹാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിൽ എയർ ഇന്ത്യ ജീവനക്കാരും ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും കാണിച്ച അർപ്പണ മനോഭാവത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭി നന്ദിച്ചു ഇതുവരെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തികച്ചും ഫല പ്രദമായിരുന്നുവെന്ന് യോഗം അഭിപ്രായപ്പെട്ടു

വിമാനത്താവളങ്ങളിൽ ഇതുവരെ രണ്ട് ലക്ഷത്തി അൻപത്തിയോരായിരത്തിൽ അധികം ആളു കളെ പരിശോധനക്ക് വിധേയമാക്കി പിവിധ സംസ്ഥാനങ്ങളിലായി പതിനാറായിരത്തിലേറെ പേരെ വീടുകളിലും ആശുപത്രികളിലുമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്

എറണാകുളം ജില്ലയിൽ ചൈനയിലെ രോഗ ബാധിത പ്രദേശ ങ്ങളിൽ നിന്നും മടങ്ങിവന്ന ഒൻപത് പേരെക്കൂടി വീടുകളിൽ കഴി യാൻ ആവശ്യപ്പെട്ടു നിരീക്ഷണ കാലയളവ് അവസാനിച്ച അഞ്ച് പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി

മൊയ്തീൻ അറിയിച്ചു തൃശൂർ ടൌൺഹാളിൽ പ്രളയ ബാധിതരുടെ വായ്പകൾക്ക് സംസ്ഥാന ഗവൺമെന്റ് പലിശ നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രളയാ നന്തര പ്രവർത്തനങ്ങൾക്ക് ഏറെ സാമ്പത്തിക പ്രയാസങ്ങൾ നേരി ട്ടെങ്കിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകാൻ സാധിച്ചു എന്നും മന്ത്രി പറഞ്ഞു സാമൂഹ്യസുരക്ഷയ്ക്ക് ഒപ്പം തൊഴിലാളികളുടെ ആരോഗ്യ സുര ക്ഷയും ഉറപ്പുവരുത്തുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ അറിയിച്ചു കൊല്ലം കടമ്പനാട് ഇഎസ്ഐ ഡിസ്പെൻസറിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇഎസ്ഐ ആശുപത്രികളിലൂടെ തൊഴിലാളികൾക്ക് മെച്ച പ്പെട്ട ചികിത്സാ സൌകര്യം ലഭ്യമാക്കും ആശുപത്രിയിൽ കൂടുതൽ ആധുനിക സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സഹായം ആവ ശ്യപ്പെട്ടിട്ടുണ്ട് ഇഎസ്ഐയുടെ സ്വന്തം രണ്ടര ഏക്കർ സ്ഥലത്ത് രണ്ടര കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഇന്ന് പകൽ താപനില രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ ചൂട് വർദ്ധി ക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ദൂരന്ത നിവാരണ അതോറിറ്റി പൊതു ജനങ്ങൾക്ക് പ്രത്യേക മുൻകരുതൽ നിർദേശങ്ങൾ പുറപ്പെടുവിച്ചു വെയിൽ നേരിട്ട് കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും ആവ ശൃത്തിന് വെള്ളം കൂടിക്കണമെന്നും നിർദേശത്തിൽ പറയുന്നു പകൽ ചൂട് കൂടുന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ തൊഴിൽ സമയം പുനക്രമീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ കുടിവെള്ള വിതരണത്തിന് ഭക്ഷ്യസുരക്ഷാ കമ്മീ ഷണർ കർശനമായ നിബന്ധനകൾ ഏർപ്പെടുത്തി കൂടുതൽ വിവരങ്ങളുമായി ജി നിമിഷ

വാഹന നമ്പർ ഉൾപ്പെടു ത്തിയായിരിക്കും ലൈസൻസ് കുടിവെള്ളമെന്ന് വാഹനത്തിൽ എഴുതി പ്രദർശിപ്പിക്കേണ്ടതാണ് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രമേ വിതരണം ചെയ്യാവൂ അല്ലാത്തവയിൽ മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളം എന്നും രേഖപ്പെടുത്തണം വാഹനത്തിൽ ക്ലോറിൻ ടെസ്റ്റ് കിറ്റും അത് ഉപയോഗിക്കാനറിയാ വുന്ന ഒരാളും ഉണ്ടാവണം ടാങ്കും വിതരണത്തിന് ഉപയോഗിക്കുന്ന ഹോസുകൾ പമ്പുകൾ തുടങ്ങിയവയും അണുവിമുക്തമാക്കിയിരി ക്കണം

ജലം സുരക്ഷിതമാണെന്ന് ആറുമാ സത്തിലൊരിക്കൽ സാക്ഷ്യപ്പെടുത്തി സർട്ടിഫിക്കറ്റും വാങ്ങണം ഇത്തരം വൃവസ്ഥകൾ പാലിക്കുന്നവരിൽ നിന്ന് മാത്രം വെള്ളം വാങ്ങാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ കമ്മീ ഷണർ നിർദേശിച്ചു

മന്ത്രി എം

മണി ഇംഗ്ലീഷ് പള്ളി പാരിഷ് ഹാളിൽ രാവിലെ അദാലത്ത് ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ ടി

ശശീന്ദ്രനും മറ്റ് ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക പുതുക്കൽ നിർത്തിവെച്ചതായി സംസ്ഥാന തെരഞ്ഞെ ടുപ്പ് കമ്മീഷണർ വി

ഹൈക്കോടതി വിധി യുടെ പകർപ്പ് കിട്ടിയ ശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ദയാഹർജി തള്ളിയതിനെതിരെ നിർഭയ കേസിലെ പ്രതി വിനയ് ശർമ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും

അതേസമയം നിർഭയ കേസിൽ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ മരണ വാറന്റ് പുറപ്പെടുവിക്കണമെന്ന ജയിൽ അധികൃത രുടെ ഹർജിയിൽ വാദം കേൾക്കൽ അഡീഷണൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച്ചത്തേയ്ക്ക് മാറ്റി

നായിഡു ക്രിക്കറ്റ് ട്രോഫിയിലെ കേരളത്തിന്റെ അവസാന ഹോം മത്സരം ഇന്ന് തലശ്ശേരിയിൽ തുട ങ്ങും കോണോർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചത്തീസ്ഗഡുമാ യാണ് കേരളത്തിന്റെ മത്സരം

കോഴിക്കോട് സമാപിച്ച പ്രഥമ ബീച്ച് ഗെയിംസ് വടംവലി മത്സ രത്തിൽ പുരുഷ വിഭാഗത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി

വനിതാ വിഭാഗത്തിൽ കാസർഗോഡ് ട്ടീമാണ് ചാമ്പ്യൻമാർ കൊല്ലം ജില്ല രണ്ടാംസ്ഥാനവും പാലക്കാട് ടീം മൂന്നാം സ്ഥാനവും നേടി ഫിഷർമെൻ വിഭാഗത്തിൽ കോഴിക്കോട് ചാമ്പ്യൻമാരായി തൃശൂർ രണ്ടും കണ്ണൂർ മൂന്നും സ്ഥാനങ്ങൾ നേടി

ഉച്ചക്ക് രണ്ടിന് ബെങ്കലൂരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് മത്സരം ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഈ മാസം അവസാനം കേന്ദ്ര ഭരണ പ്രദേശമായ ലഡാക്കിൽ നടത്തുമെന്ന് കേന്ദ്ര മന്ത്രി കിരൺ റിജ്ജു അറിയിച്ചു അടുത്ത മാസം കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിലും സമാനമായ പരിപാടി സംഘടിപ്പിക്കും രണ്ട് ഗെയിമു കൾക്കും കായിക മന്ത്രാലയും ധനസഹായം നൽകും എംപിയാവാൻ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ പി പരമേശ്വരൻ അത് നിരസിക്കുകയായിരുന്നുവെന്നും തന്നെ എംപിയാക്കിയത് അദ്ദേഹ മാണെന്നും മുതിർന്ന ബിജെപി നേതാവ് ഒ രാജഗോപാൽ എംഎൽഎ പറഞ്ഞു

കർക്കടകം രാമായണ മാസമായി ആചരിക്കാൻ മലയാളികളെ ശീലി പ്പ ന പി

രാജ്യത്ത് സഹകരണ മേഖലക്ക് പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു രംഗ വുമില്ലെന്നും മേഖലക്ക് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പ്രധാന പങ്കുണ്ടെന്നും മന്ത്രി എം

മണി പറഞ്ഞു ഇടുക്കി കാഞ്ചിയാർ സർവ്വീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ബിസിനസ് രംഗത്ത് വെല്ലുവിളി എടുക്കാൻ തയാറായാൽ മാത്രമേ സമൂഹത്തിനും രാജ്യത്തിനും പുരോഗതി ഉണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയൂവെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് അഭി പ്രായപ്പെട്ടു

കോഴിക്കോട് സംരംഭകത്വ വികസന പരിശീലന പരിപാടി യിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയാ യിരുന്നു അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയുമായി സഹക രിച്ച് പേരാമ്പ്രയിൽ ഒരു വർഷത്തെ കരിയർ ഗൈഡൻസ് കോഴ്സ് തുടങ്ങണമെന്ന് നിർദേശം പരിഗണിക്കാമെന്ന് ചീഫ് സെക്രട്ടറി അറി യിച്ചു ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ സാമൂഹൃ മാധൃമ ങ്ങളിലെ ചതിക്കുഴിയിൽപെടുന്ന പെൺകുട്ടികളുടെ എണ്ണം വർധി ക്കുന്നതായി സംസ്ഥാന വനിതാ കമ്മീഷൻ വിലയിരുത്തി

നാരായണൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും

സംസ്ഥാന പുരോഗതിക്കാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്ന തിനായി സാമ്പത്തിക സ്ഥിതിവിവര വകുപ്പ് നടത്തുന്ന സർവെയു മായി പൊതുജനങ്ങളും സ്ഥാപനങ്ങളും സഹകരിക്കണമെന്ന് വകുപ്പ് ഡയറക്ടർ അഭ്യർത്ഥിച്ചു പൌരത്വ രജിസ്റ്റർ നിയമഭേദഗതി എന്നി വയുമായി വകുപ്പുതല വിവരശേഖരണത്തിന് ബന്ധമില്ലെന്നും അദ്ദേഹം അറിയിച്ചു എറണാകുളം ജില്ലയിൽ എം

ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിക ളായ ബേസിൽ മാത്യു ഗീവർഗ്ഗീസ് എന്നിവരാണ് സംഭവ സ്ഥലത്തു തന്നെ മരിച്ചത്

സി

പുനലൂർ പിറവന്തൂർ സ്വദേശി ജയകൃഷ്ണൻ ആണ് മരിച്ചത്